ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

നിയന്ത്രണങ്ങളുമായി സംസ്ഥാനം കാസർകോട് അതീവ ജാഗ്രത

മുഖ്യമന്ത്രിമാരുമായി ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായ പോരാട്ടമാണ് നടത്തുന്നത് വൈറസ് വ്യാപനം പ്രതിരോധിക്കുന്നതിൽ അടുത്ത മൂന്ന് നാല് ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗപ്രതിരോധത്തിനായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ

കൊറോണ വ്യാപനത്തിന്റെ നിലവിലെ ഘട്ടത്തിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ് നിശ്ചയദാർഢ്യവും ക്ഷമയുമാണ് കൊറോണ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗം വ്യാപാര സ്ഥലങ്ങൾ ജനക്കൂട്ടമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്നത് ശരിയായ സമീപനമല്ലെന്നും അത് മറ്റുള്ളവരെ കൂടി അപകടത്തിലാക്കുമെന്നും ശ്രീ

ആരോഗ്യ പ്രവർത്തകർക്ക് മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് അത്യാവശ്യമല്ലാത്ത ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല ഡോക്ടർമാർ ആരോഗ്യപ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ നടത്തുന്ന സേവനത്തിന് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് എല്ലാ ജനങ്ങളും നന്ദി അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ മേഖലകളിലെ പ്രധാന വൃക്തിത്വങ്ങളും പ്രമുഖ സംഘടനകളും ജനതാ കർഫ്യൂവിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി ചലച്ചിത്ര താരങ്ങളായ ഷാരൂഖ് ഖാൻ ഷാഹിദ് കപൂർ മാധുരി ദിക്ഷിത് കമൽ ഹാസൻ ക്രിക്കറ്റ് താരം കെവിൻ പീറ്റേഴ്സൺ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു പ്രമുഖ താരങ്ങളായ അമിതാഭ് ബച്ചൻ കരൻ ജോഹർ അക്ഷയ് കുമാർ ഹൃതിക് റോഷൻ തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനതാ കർഫ്യൂവിന് പിന്തുണ അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാള്ള ജ്നത കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി ് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ നാളെ പുലർച്ചെ നാല് മണിയോട്ടൂട്ട്ട് ന്യർവീസ് നിർത്തും

രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ പുനെ എന്നിവയടക്കമുള്ള നഗരങ്ങളിലെല്ലാം ഓഫീസുകളും തൊഴിലിടങ്ങളും അടയ്ക്കാൻ നിർദ്ദേശം നൽകി

സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്ക് എതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കാസർകോട് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ ഒരാഴ്ച അടച്ചിടും

എല്ലാ ക്ലബ്ബുകളും രണ്ടാഴ്ച പ്രവർത്തിക്കില്ല കാസർകോട്ട് രണ്ട് എം

ഈ ദിനത്തിൽ കെ എസ് ആർ ടി സി മെട്രോ ഉൾപ്പെട്ടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഓടില്ല

വിരമിച്ച ശേഷം കൺസൾട്ടന്റായും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അവസരം നൽകാനും ഉത്തരവിറക്കി കരാർ ജീവനക്കാർക്ക് ശമ്പളം നഷ്ടമാക്കാതെ മാറി മാറി ജോലിയിൽ ഹാജരാകാൻ അവസരം നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു

സ്പെയിനിൽ മരണം ആയിരം കടന്നു ആകെ രണ്ടര ലക്ഷത്തിലധികം പേർക്കാണ് രോഗം ബാധിച്ചത്

എ ഇ യിൽ കോവിഡിനെ തുടർന്ന് ഇന്ത്യാക്കാരുൾപ്പെടെ രണ്ട് പേർ ഇന്നലെ മരിച്ചു വൃക്കയുടെ പ്രവർത്തന് തകർാറും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കാരണം ബ്ലുദ്ധിമുട്ടിലായിരുന്ന ഇന്ത്യാക്കാരനാണ് മരണമടഞ്ഞത്

യൂറോപ്പിൽ നിന്ന് ഈയിടെ തിരിച്ചെത്തിയ അറബ് വംശജനാണ് മരിച്ച രണ്ടാമൻ

എ

സ്വയം നിയന്ത്രണം പാലിച്ചാൽ പ്രായം ചെന്നവർക്കും രക്ഷപ്പെടാനാകുമെന്നും സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് പറഞ്ഞു

കാനഡയുമായുള്ള അതിർത്തി നേരത്തേ അടച്ചിരുന്നു

ന്യൂയോർക്ക് വാഷിംങ്ടൺ കലിഫോർണിയ സംസ്ഥാനങ്ങളിലാണ് രോഗബാധിതർ ഏറെയുള്ളത്

എസ് ട്രഷറി വകുപ്പ് അറിയിച്ചു

അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് പ്രസിഡന്റ് റസിപ് തയ്യിപ് എർദോഗൻ അഭ്യർത്ഥിച്ചു

ഇടുക്കി ജില്ലയുമായി അതിർത്തി പ്ലങ്കിടുന്ന കമ്പംമെട്ട് ബോഡിമെട്ട് കുമളി ചിന്നാർ ചെക്ക് പോസ്റ്റുകളിലും നിയന്ത്രണം നിലവിൽ വന്നു